രാജ്യത്ത് ശാസ്ത്ര ഗവേഷണ മേഖല കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഇന്ത്യയിൽ മൂൻക്രുതലിനായി പ്രത്യേക മാർഗ്ഗനിർദ്ദേശം

തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ തെരച്ചിൽ

ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും കണ്ടുപിടിത്തങ്ങളുടെ മേഖലയിലും ഇന്ത്യയ്ക്ക് സമ്പന്നമായ പൈതൃകമാണ് ഇന്ത്യൻ ശാസ്ത്ര മേഖലയിൽ നിക്ഷേപം നടത്താൻ ആഗോള സമൂഹത്തോട് ശ്രീ

ആഴക്കടലിലും ബഹിരാകാശത്തും ഒരേപോലെ വിജയം നേടേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണെന്നും ശാസ്ത്ര പഠനത്തിന്റെ ഏറ്റവും മികച്ച കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റാനാണ് ശ്രമമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ടാഗോർ ആവിഷ്ക്കരിച്ച പ്രബോധനരീതിയാണ് സർവകലാശാല പിന്തുടരുന്നതെങ്കിലും സാവധാനം അത് ആധുനിക സർവകലാശാലകളുടെ മാതൃകയിൽ മാറുകയായിരുന്നു പ്രധാനമന്ത്രിയാണ് സർവകലാശാലയുടെ ചാൻസലർ

ബ്രിട്ടനിൽ നിന്നും മടങ്ങിയെത്തിയവരെ കണ്ടെത്തി പരിശോധന നടത്തുകയാണ് വിവിധ രാജ്യങ്ങൾ ബ്രിട്ടനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളും റദ്ദാക്കി

കോവിഡിന്റെ വകഭേദം കൂടുത്ത്ര് ഗൌരവതരമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസ്സൺ ്പറഞ്ഞു

ബയോൺടെകും ്യമാദ്ധേണയും അടക്കമുള്ള വാക്സിൻ നിർമ്മാതാക്കൾ തങ്ങളുടെ വാക്ക്സീൻ കോവിഡിന്റെ പുതിയ രൂപത്തെയും ചെറുക്കുമെന്ന് അവകാശപ്പെട്ടു

സ്വിറ്റ്സർലന്റിൽ ബ്രിട്ടനിൽ നിന്നും മടങ്ങിയ ആയിരം പേരെ ക്വാറന്റൈനിലാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

അടിസ്ഥാന പ്രതിരോധ മാർഗ്ഗങ്ങൾ ശക്തമാക്കണമെന്നും സാമൂഹൃ അകലം പരിശോധന കാറന്റൈൻ മാസ്ക് ധരിക്കൽ എന്നിവ നിർബന്ധമാക്കണമെന്നും ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി അറിയിച്ചു

ബ്രിട്ടണിൽ നിന്നോ ബ്രിട്ടന്റിലെ വിമാനത്താവളങ്ങൾ വഴിയോ എത്തുന്ന യാത്രക്കാർക്ക് ആർട്ടി ്പി സി

നാല് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും കിയോസ്കുകൾ ആരംഭിക്കും

ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ കോവിഡ് പരിശോധന ശക്തമാക്കും

ഇവിടെ നിന്നും വന്നവരുടെ കാറന്റൈൻ ശക്തിപ്പെടുത്തും

ഇതിൽ അഞ്ചരക്കോടി പേർ രോഗമുക്തി നേടി

പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ രണ്ടാമതും തള്ളുകയായിരുന്നു നിയമസഭ ചേരേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന് പറഞ്ഞാണ് ഗവർണർ ശുപാർശ തള്ളിയത് ഇന്ന് ഒരു മണിക്കൂർ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നത് നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ അനുമതി നിഷേധിക്കുന്നത് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമാണ് പുതിയ കാർഷിക നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി കർഷക പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യത്തിൽ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടതു ണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗവർണർക്ക് മറുപടി നൽകിയത്

നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയന്ത്രണ നിയമ പ്രകാരം എൻ ഐ എ സ്വമേധയാ എടുത്ത കേസ് കഴിഞ്ഞ വർഷം ജനുവരി ഒൻപതിനാണ് രജിസ്റ്റർ ചെയ്തത് കുറ്റാരോപിതരായ ആറ് പേരുടെ വീടുകളിലും തെരച്ചിൽ നടത്തി

ശ്വസ്ന്പ്രക്രിയ പൂർണമായും വെന്റിലേറ്റർ സഹായത്തിലാക്കി മരു്ന്നു്കളോട് തൃപ്തികരമായി പ്രതികരിക്കുന്നില്ലെന്ന് ആശുപത്രി ്സൂപ്രപണ്ട് അറിയിച്ചു തിങ്കളാഴ്ചയാണ് സുഗതകുമാരിയൌതിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെയ്യിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

ഇന്നലെ രാവിലെ ആറന്മുള പാർത്ഥ സാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തങ്ക അങ്കി ഘോഷയാത്ര ഇന്ന് രാവിലെ ഓമല്ലൂർ രക്തകണ്ഠ സ്വാമിക്ഷേത്രത്തിൽ നിന്നും അൽപ്പസമയത്തിനകം പുനഃരാരംഭിക്കും

കേസിൽ ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരും മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയും കുറ്റക്കാരാണെന്ന് സി ബി

എൽ ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ്

ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടി ഇന്ന് ജംഷഡ്പൂർ ഗോവ മത്സരമാണ്